പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത്തിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ജനങ്ങളുമായി സംവദിക്കും

റെയിൽ വ്യോമ ഗതാഗതം തടസ്സപ്പെട്ടു

ഇന്ത്യൻ ബോക്സിംഗ് താരം എം സി മേരികോം ഒളിമ്പിക് യോഗ്യതാ മത്സരത്തിലേക്ക് അർഹതനേടി

ഹിന്ദി പ്രക്ഷേപണം കഴിഞ്ഞാൽ ഉടൻതന്നെ ആകാശവാണിയിൽ മലയാളത്തിൽ മൻ കി ബാത്തിന്റെ പ്രക്ഷേപണം ഉണ്ടായിരിക്കും

നിരവധി പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് പരിപാടിയിലൂടെ പ്രധാനമന്ത്രി ജനങ്ങളുമായി പങ്കുവയ്ക്കുന്നത്

മൂടൽമഞ്ഞിനെ തുടർന്ന് ഡൽഹി വിമാ്നത്താവളത്തിൽ ദൂരക്കാഴ്ച പൂർണ്ണമായി നഷ്ടപ്പെട്ടു പഞ്ചാബ് ഹരിയാന ചണ്ഡിഗഢ് ഡൽഹി വടക്കൻ രാജസ്ഥാൻ ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ താഴ്ന്ന താപനിലയിൽ മാറ്റമില്ല അടുത്ത രണ്ടു ദിവസം കൂടി അതിശൈത്യം തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണകേന്ദ്രം അറിയിച്ചു റെയിൽ വ്യോമ ഗതാഗത സർവ്വീസുകളെ മോശം കാലാവസ്ഥാ ഗുരുതരമായി ബാധിച്ചു

ഗുവാഹത്തിയിൽ ഇന്ന് നടന്ന റാലിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം സംസ്ഥാനത്തെ സമാധാനത്തിന്റെ അടിത്തറയാണ് അസം കരാർ എന്നും അദ്ദേഹം പറഞ്ഞു

തന്റെ പാർട്ടി പൌരത്വ ഭേദഗതി നിയമത്തെ എതിർക്കുന്നതായും രാജ്യത്തെ സാമ്പത്തിക വ്യവസ്ഥയെ ബിജെപി നശിപ്പിച്ചതായും ശ്രീ രാഹുൽ ഗാന്ധി ആരോപിച്ചു

ജെ

നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നൽകിയ വാഗ്ദാനങ്ങൾ ഒന്നും പാലിക്കാൻ എ

പൌരത്വ നിയമ ഭേദഗതിക്കെതിരായ പ്രക്ഷോഭങ്ങൾ ആളിക്കത്തിക്കാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നതെന്ന് മുതിർന്ന ബി ജെ

നേതാവും കേന്ദ്രമന്ത്രിയുമായ ഡോ

വിദ്യാഭ്യാസത്തിന്റെ പേരിൽ കെജ്രിവാൾ ഗവൺമെന്റ് നിർവ്ഡി പ്രചരണം നടത്തിയതായും കേന്ദ്രമന്ത്രി ആരോപിച്ചു

ഈ നിയമം കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നും രാജ്യത്തിന് വളരെ സുപ്രധാനമാണെന്നും ശ്രീ ്നിഷാങ്ക് പറഞ്ഞു ഭോപ്പാലിൽ അടൽ സ്മൃതി പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം പൌരത്വ ഭേദഗതി അയൽ രാജ്യങ്ങളിലെ അടിച്ചമർത്തപ്പെട്ട ന്യൂനപക്ഷങ്ങൾക്ക് നീതി ലഭ്യമാക്കുമെന്ന് കേന്ദ്രമന്ത്രി നരേന്ദ്ര സിംഗ് തോമർ പറഞ്ഞു നിയമത്തെ എതിർത്തു കൊണ്ട് കോൺഗ്രസും ഇടതുപക്ഷവും അക്രമം വ്യാപിപ്പിക്കാനാണ് ശ്രമിക്കുന്നതെന്നും ശ്രീ തോമർ കുറ്റപ്പെടുത്തി

ഭരണഘടനയക്ക് വിരുദ്ധമായി ഒന്നും ചെയ്യില്ലെന്നും ഗവർണർ പറഞ്ഞു

കൂടുതൽ വിവരങ്ങളുമായി കൃഷ്ണ വോയ്സ് പൌരത്വ നിയമ ഭേദഗതിയെ കുറിച്ച് വിശദീകരിക്കുന്നതിനായി പ്രതിഷേധക്കാരെ രാജ്ഭവനിലേക്ക് ക്ഷണിച്ചിരുന്നുവെങ്കിലും ആരും വന്നില്ലെന്നും ഗവർണർ പറഞ്ഞു

ഗവർണറുടെ പ്രസംഗം പുരോഗമിക്കുന്നതിനിടെ ചരിത്രം ക്കോൺഗ്രസിൽ പങ്കെടുത്ത പ്രതിനിധികളുൾപ്പെടെ പ്പക്കാർഡുകളുമേന്ത് ബഹളംവച്ചു ബഹളംവച്ച നാലു പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തെങ്കിലും പിന്നീട് വിട്ടയച്ചു അതിനിടെ ചരിത്ര കോൺഗ്രസിന്റെ ഉദ്ഘാടനത്തിനിടെയുണ്ടായ സംഭവ വികാസങ്ങളെക്കുറിച്ച് വിശദ്രീകരിക്കന്നതിനായി ഗവർണർ കണ്ണൂർ സർവ്വകലാശാല വൈസ് ചാൻസ്ലറെ ഗസ്റ്റ് ഹൌസിലേക്ക് വിളിച്ചു വരുത്തി ചടങ്ങിന്റെ ദൃശ്യങ്ങൾ വി സി ഗവർണർക്ക് കൈമാറിയതായാണ് സൂചന വിമർശനങ്ങളും വിയോജിപ്പുകളും ജനാധിപത്യത്തിന്റെ അന്തസത്തയാണെന്നും സമാധാനപരമായി വിയോജിപ്പ് പ്രകടിപ്പിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ടെന്നും ഗവർണർ മാധ്യമങ്ങളോട് പറഞ്ഞു എന്നാൽ അക്രമങ്ങൾ നടത്താനും പൊതുമുതൽ നശിപ്പിക്കാനും ശ്രമിക്കുന്നത് ശരിയല്ല ഭരണഘടനാ പദവിയിൽ ഇരിക്കുന്ന ആൾ എന്ന നിലയിൽ ഭരണഘടനക്കും പാർലമെന്റ് പാസാക്കിയ നിയമത്തിനും എതിരായി തന്റെ സാന്നിധ്യത്തിൽ വിമർശനം ഉണ്ടായാൽ അതിന് മറുപടി നൽകേണ്ട ബാധ്യതയുണ്ടെന്നും ശ്രീ

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഇന്നലെ പുറത്തിറ്റക്കിയ ഇരുപതാമത് സാമ്പത്തിക സുസ്ഥിരതാ റിപ്പോർട്ടിലാണ് കേന്ദ്ര ബ്ലാങ്ക് ഇക്കാര്യം വ്യക്തമാക്കിയത് പൊതുമേഖലാ ബാങ്കുകളുടെ മൂലധനം വർദ്ധിപ്പിക്കാൻ ഭരണകൂടം നടത്തിയ ഇടപെടലുകൾ ബാങ്കീംഗ് മേഖലയുടെ പുരോഗതിയ്ക്ക് വഴി തുറന്നിട്ടുണ്ട്

മുൻ എം ഡി ജോയ് ്തോമസ് മുൻ ചെയർമാൻ ് വാര്യംസിംഗ് ് മുൻബാങ്ക് ഡയറക്ടർ സുർജിത് സിംഗ് അറോറ പ്രമോട്ടർമാരായ രാകേഷ് വാധവാൻ സാരംഗ് വാധവാൻ എന്നിവരുടെ പേരുകൾ കുറ്റപത്രത്തിൽ പരാമർശിക്കുന്നുണ്ട്

ഇതിനുശേഷം ചരക്ക് ലോറികൾ അടക്കമുള്ള വലിയ വാഹനങ്ങൾക്ക് പാത തുറന്നു കൊടുക്കും

മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ടെന്ന് ഗവൺമെന്റ് വക്താവ് അറിയിച്ചു

കൊല്ലപ്പെട്ടവരിൽ ഭൂരിഭാഗവും വിദ്യാർത്ഥികളാണെന്ന് മേയർ ഒമർ മൊഹമ്മുദ് മൊഹമ്മദ് വൃക്തമാക്കി

താലിബാൻ തീവ്രവാദികൾ സൈനിക താവളത്തിലേക്ക് തുരങ്കം നിർമ്മിച്ച് കടന്നുകയായിരുന്നു

സാൻഗിൻ ജില്ലയിൽ ജനങ്ങളുടെ സുരക്ഷയ്ക്കായി വിന്യസിച്ചു സൈനികർക്കു നേരെയായിരുന്നു ആക്രമണമുണ്ടായത്

ശൈത്യകാല അവധിയായതിനാൽ മുഴുവൻ ബെഞ്ച് ഉണ്ടാകില്ല എന്ന കാരണത്തിലാണ് മുഷറഫിന്റെ അപേക്ഷ തള്ളിയത്

ഫിജിയിലെ പ്രധാന ദ്വീപായ വിറ്റി ലിവു ദക്ഷിണ ദ്വീപുകൾ എന്നിവ വഴി ടോങ്കയിലേക്ക് ്സാരായി പ്രവേശിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ന്യൂസ് ഡെസ്ക് ആകാശവാണി

സി

അടുത്ത വർഷം ചൈനയിലാണ് ഒളിമ്പിക് യോഗ്യതാ മത്സരങ്ങൾ നടക്കുന്നത്